നരേന്ദ്രമോദി ദക്ഷിണ കൊറിയയിൽ ഇന്ത്യ കൊറിയ വാണിജൃ സിംബോസിയത്തെ അഭിസംബോധന ചെയ്യും

സൌദി കിരീട്ടാവകാശിയുടെ ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന്

കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയോട് ആവശ്യപ്പെട്ടു

കേരളത്തിൽ അഗതിരഹിത സംസ്ഥാനം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും

ഇന്ത്യയും ദക്ഷിണകൊറിയയും തമ്മിൽ നിലനിൽക്കുന്ന ഉന്നത തല ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയ നേതൃത്വം വാണിജൃ വ്യാപാര പ്രതിനിധികൾ ഇന്ത്യൻ സമൂഹം എന്നിവയുമായുള്ള ആശയവിനിമയം സന്ദർശുനത്തിന്റെ ഭാഗമാണ്

അയോദ്ധ്യയുടെ സഹോദരി നഗരമായി പ്രഖ്യാപിച്ചിട്ടുള്ള കിംഹേ നഗരത്തിന്റെ മേയറുമായി പ്രധാന്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും യോൺസി സർവകലാശാലയിലെ സോൾ ക്ടാമ്പസിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അദ്ദേഹം അന്മാഛാദനം ചെയ്യും വൈകിട്ട് ദക്ഷിണകൊറിയയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും

അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള അർപ്പണ സേവനത്തിന് അംഗീകാരമായി സോൾ സമാധാന പുരസ്കാരം ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി സൌദി കിരീടാവകാശിയുടെ ഇന്ത്യൻ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം രണ്ട് ലക്ഷമാക്കുമെന്ന് സൽമാൻ ഉറപ്പു നൽകിയതായും വക്താവ് അറിയിച്ചു

തീവ്രവാദത്തിനെതിരെ ഇന്ത്യയ്ക്കൊപ്പം പോരാടുമെന്നും സൌദി അറേബ്യ വ്യക്തമാക്കി

ഭീകരത ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ ലോക രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും സൌദി അറേബ്യയും നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു രാഷ്ട്രപതി ഭവനിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് നല്കിയ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിഷ്കൃത സമൂഹത്തിൽ ഭീകരതയ്ക്ക് ഒരു സ്ഥാനവുമില്ല മേഖലയിൽ സുസ്ഥിരതയുടെ പ്രതീകമാണ് സൌദി അറേബ്യ മികച്ച വികസന പങ്കാളിയായി ഇന്ത്യ സൌദി അറേബ്യയെ വിലയിരുത്തുന്നു സാങ്കേതിക രംഗം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ സൌദി അറേബ്യയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സൌദി അറേബ്യയൂമായി എക്കാലവും ഊഷ്മള ബന്ധം തുടരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് രാം നാഥ് കോവിന്ദ് പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സൌദി അറേബ്യയുമായുള്ള വ്യാപാരത്തിൽ കാർഗ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു

ജാദവിനെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു മുൻ സോളിസിറ്റർ ജനറൽ ഹരീഷ് സാൽവെയാണ് ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ കുൽഭൂഷനു വേണ്ടി വാദിച്ചത് കേസിൽ രണ്ടാം വാദമാണ് ഇന്നലെ നടന്നത് കോടതി നടപടികൾ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ മൂന്നു തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി അദ്ദേഹം കോടതിയെ അറിയിച്ചു പാക് സൈനിക കോടതിയുടെ തീരുമാനത്തിന് നിയമസാധുതയില്ലെന്ന് അദ്ദേഹം വാദിച്ചു പുൽവാമയിൽ പാക് ഭീകര സംഘടന ജയ്ഷ മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണത്തെയും സാൽവെ കോടതിയെ ബോധിപ്പിച്ചു

കുറഞ്ഞ വിഭവശേഷിയുള്ള സംസ്ഥാനത്ത് വിഘടനവാദി നേതാക്കളുടെ സുരക്ഷയ്ക്കായി വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നത് പാഴ് ചെലവാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി സയ്യിദ് അഹമ്മദ് ഷാ ഗിലാനി ആഗ സയ്യിദ് മോസ്വി മൌലവി അബ്ബാസ് അൻസാരി യാസീൻ മാലിക് സലീം ഗിലാനി ഷാഹിദ് ഉൾ ഇസ്ലാം സഫർ അക്ബർ ഭട്ട് തുടങ്ങിയവരുടെ സുരക്ഷയാണ് പിൻവലിച്ചത് ഞായറാഴ്ച നാലു ഹുറിയത്ത് നേതാക്കളുടെ സുരക്ഷയും പിൻവലിച്ചിരുന്നു

എ ഭരണകാലത്തേക്കാൾ എൻ

എ ഭരണകാലത്ത് ഗുജറാത്തിൽ റെയിൽ പദ്ധതികളുടെ നിക്ഷേപത്തിൽ അഞ്ചിരട്ടി വർദ്ധന ഉണ്ടായെന്ന് റെയിൽവേ ടെലി കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി മനോജ് സിൻഹ ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ ബിജെപി റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി

കെ അധ്യക്ഷൻ എം

സ്റ്റാൻലിനുമായി തമിഴ്നാടിന്റെ ചുമതലയുള്ള മുകുൾ വാസിനിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചു

ഇന്ത്യയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വലിയ വളർച്ച ഉണ്ടായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം സർക്യൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ണൂർ തളിപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിലെ കൽപ്പറ്റയിൽ മന്ത്രി എ സി മൊയ്തീൻ നിർവ്വഹിക്കും കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ഇതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി അറുപതിനായിരം ഗുണഭോക്താക്കൾക്ക് ഉപജീവൻ അതിജീവന ആവശ്യങ്ങൾ ലഭ്യമാക്കും സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ഉൾപ്പെടെ നിരാലംബ കുടുംബങ്ങളുടെ സമഗ്ര പുനരധിവാസമാണ് അഗതിരഹിതകേരളം പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് ഭക്ഷണം ചികിൽസ വസ്ത്രം വിവിധ തരം പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ ഭൂമി പാർപ്പിടം കുടിവെള്ളം ശുചിത്വസംവിധാനം വൈദ്യുതി വിദ്യാഭ്യാസം എന്നിവയും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാവും തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ പിന്തുണയോടെ കുടുംബശ്രീയാണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന ദേശീയ നഗര ഉപജീവന ദൌത്യം എന്നിവയിൽ ഉൾപ്പെടുത്തി അഗതി കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിവിധ മേഖലകളിൽ തൊഴിൽ ലഭ്യമാക്കി വരുന്നുണ്ട്

ആയുർവേദത്തിന്റെ സമഗ്ര വികസനത്തിനും അമൂല്യമായ ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനുമായാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്

രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് തീ പിടുത്തമുണ്ടായത്

വാതക സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നതെന്ന് അദ്ദേഹം അറിയിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു

ബാഗ്പത് ജില്ലയിൽ ഇതിനായി തുറമുഖ സൌകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മീററ്റ് ബാഗ്പത് മൊറാദാബാദ് എന്നിവിടങ്ങളിൽ നിരവധി റോഡ് വികസന പുദ്ധതികൾക്ക് ശ്രീ

ഉൾനാടൻ ജലഗരാഗ്ത്തം വികസിക്കുന്നതോടെ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും ക്യറ്റുമതി വർദ്ധിക്കുന്നതോടൊപ്പം ഉൽപന്നങ്ങളൂടെട്ട് വിലക്കുറവിനും കാരണമാകുമെന്നും ശ്രീ

ജയരാജൻ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ കൃഷിക്കാരിൽ നിന്ന് വിപണിവിലയേക്കാൾ കൂടുതൽ പണം നൽകി റബർ വാങ്ങുമെന്നും ഈ റബർ ഉപയോഗിച്ച് ആശുപത്രികളിലും മറ്റും ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു